ഭീകരതയെ വേരോടെ പിഴുതെറിയാൻ ആഗോള സമൂഹത്തിന്റെ ഒറ്റക്കെട്ടായ പരിശ്രമം അനിവാര്യമാണെന്ന് പ്രധാമന്ത്രി നരേന്ദ്രമോദി

വിദേശ തൊഴിൽതട്ടിപ്പ് തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രസഹമന്ത്രി വി

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്രമന്തി നിതിൻഗഡ്കരിയുമായും കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തി

ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്തൃ പാകിസ്ഥാൻ മത്സരം നാളെ വെസ്റ്റിൻഡീസിനെതിരെ ഇംഗ്ലണ്ടിന് അനായാസവിജയം

ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും

ഭീകരതയെ സഹായിക്കുന്ന രാഷ്ട്രങ്ങളെ അവരുടെ പ്രവൃത്തികൾക്ക് ഉത്തരവാദികളായി കാണുന്ന സ്ഥിതി ഉണ്ടാകണം ഭീകരതയ്ക്ക് ഉത്തരവാദികൾ അതിന് പണവും സഹായവും പിന്തുണയും നൽകുന്ന രാജ്യങ്ങളാണ്

ഇന്ത്യ കിർഗിസ്ഥാൻ സഹകരണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയായി ഉച്ചകോടിയുടെ ഭാഗമായി നിരവധി രാഷ്ട്രത്തലവൻമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി

പുതിയു കേന്ദ്രമന്ത്രിസഭ അധികാരത്തിൽ വന്നതിനുശേഷം ആദ്യമായാണു നിതി ആയോഗ് ഭരണസമിതി യോഗം ചേരുന്നത് മഴഖ്വള്ള സംഭരണം വരൾച്ച ദുരിതാശ്വാസ നടപടികൾ പരിവർത്തന കൃഷി മാവോയിസ്റ്റ് ആക്രമണം നേരി ടുന്ന മേഖലയിലെ സുരക്ഷ എന്നിവ മുഖ്യ ചർച്ചയാകും പ്രധാനമ ന്ത്രിയെ കൂടാതെ സംസ്ഥാന മുഖ്യമന്ത്രിമാർ കേന്ദ്രഭരണ പ്രദേശ ങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ മറ്റു പ്രത്യേക ക്ഷണിതാക്കൾ എന്നിവരടങ്ങുന്നതാണ് നിതി ആയോഗ് ഭരണ സമിതി ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് ദേശീയ വികസന അജണ്ട നടപ്പാക്കുന്നത് വേഗത്തിലാക്കുകയാണ് യോഗ ഉദേശ്യം

സാമ്പത്തിക വളർച്ച വർദ്ധന തൊഴി ലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ ബൃഹത് സാമ്പത്തിക സ്ഥിരത നിക്ഷേപം വർദ്ധിപ്പിക്കൽ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള പ്രവർത്തന സ്വഭാവം ബജറ്റിൽ ഉണ്ടാകണം മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയി ലൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിക്കുന്നതിനുള്ള അതുല്യ അവസരമാകണം ഈ ബജറ്റെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടതായി ഔദ്യോഗിക പ്രസ്ത്യാവനയിൽ പറയുന്നു

ഇന്നിലെ ന്യൂഡൽഹിയിലെ ഡി

ഡി

ആസ്ഥാനത്തെത്തിയ അദ്ദേഹം മുതിർന്ന ശാസ്ത്രജ്ഞരുമായി ചർച്ച നടത്തി

സേനയുടെ കഴിവുകൾ നിരന്തരം വികസിപ്പിക്കപ്പെടുന്നത് ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

സമരം മൂലം രോഗികൾ ഏറെ ബുദ്ധിമുട്ടുകയാണെന്നും ആരോഗ്യ പ്രവർത്തനങ്ങളെ അത് സാരമായി ബാധച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടി

പ്രവാസി ഇന്ത്യക്കാർ രാജ്യത്തിന്റെ അംബാസിഡർമാരാണെന്നും അദ്ദേഹം പറഞ്ഞു ദുബായിയിൽ ഇന്ത്യൻ സ്മൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും

മന്ത്രി ജി സുധാകരൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് തുടങ്ങിയവരും സംഘത്തിലുണ്ട്

പഠന കേന്ദ്രങ്ങളുടെ സമഗ്രമായ വികസനത്തിനായി വാർഷിക പദ്ധതിയും പഞ്ചവത്സര പദ്ധതിയും തയ്യാറാക്കാൻ സ്ഥാപന മേധാവികൾക്ക് കേന്ദ്രമന്ത്രി നിർദ്ദേശം നൽകി

ഇന്നലെ നടന്ന മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെതിര ഇംഗ്ലണ്ട് അനായാസ വിജയം സ്വന്തമാക്കി കൂടുതൽ വിവരങ്ങളുമായി കവിത

മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രഫഡ് സ്റ്റേഡിയത്തിൽ നാളെ നടക്കുന്ന മത്സരം കലാശപ്പോരു പോലെ ആവേശകരമാകും ശിഖർധവാന്റെ പരിക്ക് അപ്രതീക്ഷിത തിരിച്ചടിയാണെങ്കിലും കെ

രാഹുൽ അവസരത്തിനൊത്തുയരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ മധ്യനിരയിൽ രാഹുലിന് പകരം ആര് കളിക്കുമെന്ന് ഇന്ത്യൻ ടീം ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല

ഇന്നലെ നടന്ന മത്സരത്തിൽ ഇ്തുണ്ട് അനായാസ വിജയമാണ് സ്വന്തമാക്കിയത്

നിലവിലെ ചാമ്പ്യൻമാരായ ഓസ്ട്രേലിയ ശ്രീലങ്കയെ നേരിടും

ഇന്നലെ നടന്ന സെമി ഫൈനലിൽ രണ്ടിനെതിരെ ഏഴ് ഗോളുകൾക്കാണ് ഇന്ത്യ ജപ്പാനെ പരാജയപ്പെ ടുത്തിയത് അമേരിക്കയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി യാണ് ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ എത്തിയത്

തമിഴ്നാടും മഹാരാഷ്ട്രയും തമ്മിലാണു രണ്ടാം സെമി ഇന്നലെ ഛത്തീസ്ഗഡിനെ തോൽപിച്ച കേരളം ചാംപ്യൻഷിപ്പിൽ തുടർച്ചയായ മൂന്നാം ജയം സ്വന്തമാക്കിയ്കാണഅ സെമിയിലെത്തി യത്

ഗ്രൂപ്പ് എ യിൽ ഇപ്പോൾ നടക്കുന്ന മൽസരത്തിൽ ബൊളീവിയയ്ക്കെതിരെ ബ്രസീൽ രണ്ട് ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു ഇരു ഗോളുകളും നേടിയത് ഫിലിപ്പ് കുട്ടീഞ്ഞോ ആണ്

ഗ്രൂപ്പ് ബി മത്സര ങ്ങളും നാളെ ആരംഭിക്കും

ഭരണകക്ഷിയായ സൈനിക കൌൺസിൽ അന്വേഷണ ആവശ്യം നിരസിച്ചിരുന്നു

രാവിലെ പുറത്തിറങ്ങാനാവാത്ത വിധം ചൂട് ജനജീവിതത്തെ ബാധിച്ചിരിക്കയാണ്